ഏകദിനം ഏഴ് വിക്കറ്റിന് ജയിച്ചു

എന്നാൽ രാജൃസുരക്ഷ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ന്യൂഡൽഹിയിൽ എൻ

അഴിമതി പുതിയ ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാവിധ തെറ്റായ പ്രവണതകളിൽ നിന്നും മാറി നിന്ന് സ്വന്തം പുരോഗതിക്കും ഒപ്പം രാജ്യ വികസനത്തിനും പ്രവർത്തിക്കാൻ അദ്ദേഹം എൻ

കേഡറ്റുകളെ ആഹ്വാനം ചെയ്തു സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിന് ഒട്ടേറെ നടപടികൾ ഗവണ്മെന്റ് സ്വീകരിച്ചിട്ടുണ്ട്

വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടു രേഖപ്പെടുത്താൻ യുവാക്കളെ പ്രേരിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി എൻ

കേഡറ്റുകളോട് ആവശ്യപ്പെട്ടു

ന്യൂഡൽഹിയിലെ തൽക്കത്തോര സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും

കഴിഞ്ഞ വർഷം ഡൽഹിയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു സംവാദത്തിൽ പങ്കെടുത്തത് എന്നാൽ ഇതാദ്യമായി രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികളും വിദേശത്ത് പഠിക്കുന്ന കുട്ടികളും പരിപാടിയിൽ പങ്കെടുക്കുന്നു റഷ്യ നൈജീരിയ ഇറാൻ നേപ്പാൾ ദോഹ കുവൈറ്റ് സൌദി അറേബൃ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഈ വർഷം സംവാദത്തിൽ പങ്കെടുക്കും കഴിഞ്ഞ വർഷത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾക്ക് അനുസൃതമായി മാനവവിഭവശേഷി മന്ത്രാലയം സ്വീകരിച്ച നടപടികളെ കുറിച്ചുള്ള ഒരു ഹ്രസ്ഥചിത്രവും ചർച്ചയിൽ പ്രദർശിപ്പിക്കും

രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ഗവൺമെന്റ് സി ബി എസ് ഇ വിദ്യാലയങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിപാടി തൽസമയം സംപ്രേക്ഷണം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ന്യൂസ്ഡസ്ക് ആകാശവാണി

കുട്ടികൾക്ക് സ്വയംപര്യാപ്തതയും സഹജീവികളോട് അനുകമ്പയും സൃഷ്ടിക്കാൻ ഈ സംഘടനകളിലെ പ്രവർത്തനങ്ങൾ സഹായിക്കും സ്വന്തം ഇഷ്ടങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ഇല്ലായ്മകളും മനസിലാക്കാൻ ഇവരെ പ്രാപ്തരാക്കും ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ റിപ്പബ്പിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ നാഷണൽ സർവ്വീസ് സ്കീം അംഗങ്ങളായ കുട്ടികളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം

നിരോധിത സംഘടനയായിക് എൻ

എഫ്

ഇവരുള്ട് അിക്ഷ് ബുധനാഴ്ച വിധിക്കും

പൌരത്വ ഭേദഗതി ബിൽ സംബന്ധിച്ച് മിസോറാം മേഘാലയ സംസ്ഥാനങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വൃത്യാസങ്ങൾ നിലവിലുണ്ട് എന്നാൽ ഇത് ദേശീയ രാഷ്ട്രീയത്തിനേയോ വരുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിനേയോ പ്രതികൂലമായി ബാധിക്കില്ല ചില വിഭാഗം ആൾക്കാർക്ക് പൌരത്വം നൽകുന്നതിനെ മിസ്സോ ജനത എതിർക്കുന്നുണ്ട്

ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തെ വിചാരണ ചെയ്യണമോ എന്ന കാര്യത്തിൽ ബുധനാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമറിയിക്കാൻ സുപ്രീംകോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം നല്കി പ്രീഫ്ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അടങ്ങുന്ന ബഞ്ചാണ് നിർദ്ദേൾ ് നല്കിയത്

ശബരിമല വിഷയത്തിലും അയോധ്യ കേസിന്റെ അവസ്ഥ ഉണ്ടായാൽ അതും നീണ്ട കാലം തീർപ്പാകാതെ കിടക്കുമെന്നും അദ്ദേഹം പറ്റ്നയിൽ പറഞ്ഞു

രാമക്ഷേത്ര നിർമ്മാണത്തിന് ഭരണഘടനാ പരമായ മാർഗ്ഗം പിന്തുടരുമെന്ന് ഗവൺമെന്റ് വൃക്തമാക്കിയിട്ടുണ്ടെന്നും ശ്രീ രവിശങ്കർ പ്രസാദ് ഓർമ്മിപ്പിച്ചു

ചീഫ് ജസ്റ്റിസ് രഞ്ചൻ ഗൊഗോയ് ജസ്റ്റിസ് സഞ്ചീവ് ഖന്ന എന്നിവർ ഉൾപ്പെട്ട ബഞ്ചാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്

അടുത്തദിവസം അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായാണ് ചർച്ച

അരുൺ ജെയ്റ്റ്ലി ചികിത്സയ്ക്ക് പോയതിനെ തുടർന്നാണ് ധനമന്ത്രാലയത്തിന്റെ ചുമതല ശ്രീ

അദ്ദേഹമായിരിക്കും ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുക

അധിനിവേശ ഭരണത്തിന് എതിരെ പോരാടാൻ രാജ്യത്തിന് പ്രചോദനം നൽകിയ ലാലാ ലജ്പത് റായി സാമൂഹിക പരിഷ്കരണം ആഭ്യന്തര സംരംഭങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിച്ചിരുന്നതായും രാഷ്ട്രപതി ട്വീറ്റ് ചെയ്തു

അഞ്ചു വർഷത്തേക്ക് രാഷ്ട്രീയ അവകാശങ്ങൾ വാംഗിന് ലഭിക്കില്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു കോടതി നടപടികളിൽ മാധ്യമപ്രവർത്തകർക്കും വിദേശ നയതന്ത്ര പ്രതിനിധികൾക്കും പ്രവേശനം നിഷേധിച്ചിരുന്നു

ചിനാബ് നദീതടത്തിലെ ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാനാണ് സംഘം എത്തിയത്

സത്ഭരണം കാഴ്ചവയ്ക്കാനാണ് താനും ഡെപ്പ്യൂട്ടി് മുഖ്യമന്ത്രി ഡോ പരമേശ്വരയും ശ്രമിക്കുന്നതെന്ന് ബ്ഠ്ജൂളുരുവിൽ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഏരു കോൺഗ്രസ് എം

മുഖ്യമന്ത്രിയുമായി സ്ക്സാരിച്ച് വിഷയത്തിന് പരിഹാരം കാണുമെന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സുബ്രഹ്മണ്യയും പ്രതികരിച്ചു

മോഹൻ സെ മഹാത്മ എന്ന് പേരിട്ട പ്രദർശനം രാഷ്ട്രപിതാവിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഒരുക്കിയിട്ടുള്ളത്

എഫ് നേതാക്കിളൂമായി അദ്ദേഹം ചർച്ച നടത്തും

ജനങ്ങളിൽ ശരിയായ ഭക്ഷണ ശീലം വളർത്തുക എന്നത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ ഭക്ഷ്യ ദിനത്തിലാണ് സൈക്ലത്തോണിന് ആഗോള തുടക്കം കുറിച്ചത്

അഞ്ചു മത്സരങ്ങളുള്ള പരമ്പരയിലെ തുടർ മത്സരങ്ങളിൽ നിന്ന് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിക്ക് വിശ്രമം അനുവദിച്ചിട്ടുണ്ട് ടി ടന്റി പരമ്പരയിലും രോഹിത് ശർമ്മയായിരിക്കും ക്യാപ്റ്റൻ